നിയമസഭാ തെരഞ്ഞ്ടുപ്പ് നടക്കുന്ന രാജസ്ഥാനിലും തെലങ്കാനയിലും പ്രചാരണം അവസാനിച്ചു

പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡ്കിയിൽ പിട്ടു കിട്ടണമെന്നാണ് സിബിഐ ആവശ്യപ്പെട്ടത് എന്ന്റ്ൽ മിഷേലിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ മിഷേലിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന് കോടതിയിൽ ആവശ്യം ഉന്നയിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെ യു എ യിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച മിഷേലിനെ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സിബിഐ പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറിന് മുമ്പാകെ ഹാജരാക്കിയത് വിദേശകാരൃമന്ത്രിസുഷമാ സ്വദരാജ് യു എ ഇ വിദേശമന്ത്രി അബ്ദുള്ള ബിൻ സയേദുമായി അബുദാബിയിൽ നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് മിഷേലിനെ ഇന്ത്യയ്ക്ക് കൈമാറിയത്

ഗുപ്തക്ക് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ

കേസിൽ ഉൾപ്പെട്ട എസ് ക്രോഫ കെ

സംമ്രിയ എന്നിവർക്കും മൂന്ന് വർഷത്തെ തടവ്ശിക്ഷ വിധിച്ചു വികാസ് മെറ്റൽസ് ആന്റ് പവർ ലിമിറ്റഡ് എം

വികാസ് മെറ്റൽസ് കമ്പനി ഒരു ലക്ഷം പിഴ അടയ്ക്കാനും കോടതി ഉത്തരവിട്ടു

ബി ഐ നിലനിർത്തി

കഴിഞ്ഞ ഒക്ടോബറിൽ പ്രഖ്യാപിച്ച നയത്തിലും റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല ആർബിഐ ഗവർണർ ഊർജിത് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ പണനയസമിതി ഐകകണ്ഠ്യേനയാണ് നിരക്കുകളിൽ മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചത്

രണ്ടാംഘട്ട വോട്ടെപ്പ് ഞായറാഴ്ച നടക്കും

ആന്ധ്രാപ്രദേശിലെ വിജയവാഢയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന അദ്ദേഹം രാഷ്ട്രീയ നേതാക്കൾ എതിരാളികളെ വിമർശിക്കാൻ അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കുന്നതിൽ ഉപരാഷ്ട്രപതി ഉത്ഖണ്ഠ രേഖപ്പെടുത്തി

വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

ഗംഗാ ശുചീകരണ പദ്ധതിയിലൂടെ അഞ്ച് വർഷത്തേക്ക് ഇരുപതിനായിരം കോടി രൂപ നീക്കി വച്ചിട്ടുണ്ട്

ഗംഗ മാലിന്യമുക്തമാക്കുന്നതിനാണ്ട് പ്ര്ഥമ പരിഗണന നൽകുന്നത് എന്നും ഇക്കാരൃത്തിൽ ഏർപ്പിട്ടുവീഴ്ചയുമില്ലെന്നും ശ്രീ നിതിൻ ഗഡ്ഗരി കൂട്ടിച്ചേർത്തുകൾ ന്യൂസ് ഡസ്ക് ആകാശവാണി

സമുചിതമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ന്യൂഡൽഹിയിലെ സൻസദ് ഭവൻ പുൽത്തകിടിയിൽ ബാബാ സാഹേബ് അംബേദ്ക്കറിന്റെ പ്രതിമക്ക് മുൻപിൽ ശ്രീ

ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മറ്റ് പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ഡോ അംബേദ്ക്കറിന് പ്രണാമം അർപ്പിക്കും

വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം കോടിക്കണക്കിന് ഗ്രാമീണരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഇതിന് കാരണക്കാരായ ശാസ്ത്രജ്ഞരിൽ ഇന്ത്യ ആ്ട്രിമാനം കൊള്ളുന്നതായി ശ്രീ

വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന വെടിവെയ്പ്പിൽ ഒരു സൈനികന് പരിക്കേറ്റു കമാൽക്കോട്ടെയിലെ നിയന്ത്രണ രേഖയിലാണ് പാക്സൈനൃം വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്ന് സുരക്ഷാ സേന അറിയിച്ചു ഇന്ത്യൻ സൈന്യം ഉചിതമായി തിരിച്ചടിച്ചു

ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിനോടാണ് അറ്റോണി ജനറൽ കെ കെ വേണുഗോപാൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇരു ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാക്കു തർക്കം സിബിഐ യുടെ സത്യസന്ധതയേയും അന്തസ്സിനെയും ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു സിബിഐയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാരുക്കതെന്ന താത്പര്യമാണ് ഗവൺമെന്റിനുള്ളതെന്ന് ശ്രീ

തുടർന്ന് പരമോന്നത കോടതി ഇന്നത്തെ വാദം പൂർത്തിയാക്കി കേസിന്റെ തുടർവാദം കേൾക്കുന്നത് നാളത്തേക്ക് മാറ്റി വച്ചു

പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമായ മണ്ണിനെ സംരക്ഷിക്കൂക ്എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപിര്യാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

ഗ്രൂപ്പ് ഡി യിൽ മലേഷ്യ പാകിസ്ഥാനെ നേരിടുകയാണ് ആദ്യ മത്സരങ്ങൾ ജയിച്ച നെതർലന്റിനും ജർമ്മനിക്കും നിലവിൽ മൂന്ന് പോയിന്റുകൾ വീതമുണ്ട് പോയിന്റ് നിലയിൽ പാക്കിസ്ഥാൻ മൂന്നാമതും മലേഷ്യ ഏറ്റവും പിന്നിലുമാണ്

ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ടീമുകളിൽ ഒന്നാം സ്ഥാനമാണ് നിലവിൽ ഇന്ത്യയ്ക്കുള്ളത്

ചാർജ്ജ് വർദ്ധനയ്ക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി

നവീകരിച്ചതോടെ ടെർമിനലിന്റെ വിസ്തീർണ്ണം നിലവിലെ ഒരുലക്ഷം ചെയ്യു്രശ്ര അടിയിൽ നിന്ന് ആറ് ലക്ഷം ചതുരശ്ര അടിയായി ്ളയ്ക്കും